പ്രാദേശിക ജനതയുടെ താൽപരൃങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ രാജൃത്തിന്റെ വികസനം ഉറപ്പാക്കാനാകുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഒരുലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വിവിധ അടിസ്ഥാന സൌകരൃ വികസന പദ്ധതികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ തുടക്കം കുറിക്കും

ലോകത്ത് അതിവേഗ വളർച്ച കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും തികഞ്ഞ വൃവസായ സൌഹൃദ അന്തരീക്ഷമാണ് രാജൃത്തുള്ളതെന്നും ഉപരാഷ്ട്രപതി എം

കേരളത്തിൽ വയനാട് വൈത്തിരിയിൽ പൊലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി രക്ഷപ്പെട്ട മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ഊൌർജ്ജിതം

പ്രാദേശികു ജനുതയുടെ വികസന ആവശ്യങ്ങൾക്ക് മതിയായ പരിഗണന്റ് നൽകുന്ന സഖ്യമാണ് എൻ ഡി എ

തമിഴ്നാട്ടിൽ ചെന്നൈയ്ക്കടുത്ത് കിളംപാക്കുത്ത് ഇന്നലെ എൻ

എ

വൈവിധ്യം നിറഞ്ഞ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് ഏല്ലർ വിഭാഗം ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഗ്രാമീണ് ജന്നത്യുടെ വികസന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്

സഖ്യം പ്രാപ്തമാണ് ഇത്തരം ജനകീയ ആവശ്യങ്ങൾ ഡൽഹിയിലെ ഹൈക്കമാൻഡല്ല തീരുമാനിക്കുന്നതെന്നും ജനങ്ങളാണ് തങ്ങളുടെ ഹൈക്കമാൻഡെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മേഖല താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ എൻ

എ

ഗുണഭോക്താക്കളുമായും ജൻ ഔഷധി സ്റ്റോർ ഉടമകളുമായും പ്രധാനമന്ത്രി സംവദിക്കും ഗുണമേൻമയുള്ള ഔഷധങ്ങൾ കുറഞ്ഞ ചെലവിൽ രാജ്യമെമ്പാടും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുളളത്

ഓരോ ബ്ലോക്കിലും ഒരു ഔഷധ സ്റ്റോർ എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എല്ലാ ഔഷധങ്ങളും എല്ലായിടത്തും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

ഡ്യൂട്ടിയിലും അവധിക്ക് പോകുമ്പോഴും ജമ്മുവിൽ നിന്ന് വിമാനത്തിൽ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെ നിരവധി നടപടികളാണ് സൈനികരുടെ ക്ഷേമത്തിനായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നടപ്പാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്നാഥ് സിംഗ് അറിയിച്ചു

തെക്കൻ കശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവന്തിപോറ മേഖലയിൽ നിന്നാണ് പ്രതി അമീർ നസീർ മിർ നെ അറസ്റ്റ് ചെയ്തത് ഇയാളെ മൊഹാലിയിലെ പ്രത്യേക എൻ ഐ

അവന്തിപോറ മേഖലയിലെ ദാദ്സറ ഗ്രാമവാസിയാണ് അമീർ നസീർ മിർ

ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല

ഒരു ഭീകര്ൻ കൂടി മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുകയാണ് മൊബ്ബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ മേഖലയിൽ താത്കാലികമായി നിർത്തിപ്പച്ചിട്ടുണ്ട്

മഞ്ഞു വീഴ്ചയെ തുടർന്ന് ശ്രീനഗർ കാർഗിൽ ലേ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്

നേതാവ് യാസിം മാലിക്കിനെതിരെ പൊതു സുരക്ഷാ നിയമം അനുസരിച്ച് കേസ് എടുത്തു മാലിക്കിനെ ഇപ്പോൾ ജമ്മുവിലെ കോർട്ട് ബാൽവാൾ ജയിലിലേക്ക് മാറ്റുകയാണ്

കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും യു

ലക്നൌ സുൽത്താൻപൂർ ലക്നൌ റിംഗ്റോഡ് ഖാഗ്ര ബിഡ്ജ് ബുധൻപൂർ എന്നീ നാലുവരിപാതകളാണ് പ്രധാനമായും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ലക്നൌ കാൻപൂർ എക്സ്പ്രസ്സ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര മന്ത്രി തുടക്കം കുറിക്കും

ദ്വീദിന സന്ദർശനാർഥം പരാഗ്വയിലെത്തിയ ഉപരാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് നിലപാട് വ്യക്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന സൈനിക നടപടി ഇതിന് തെളിവാണ് ഭീകരവാദത്തെ തുനയ്ക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒറ്റപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് ഉപരാഷ്ട്രപതി ് പറഞ്ഞു വിദേശ ഇന്ത്യാക്കാരുമായി ശക്തമായ ബന്ധമാണ് രാജ്യം നിലനിർത്തുന്നത് ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രവും എംബസികളും ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്കായി ഏത് നേരവും സഹായത്തിന് സന്നദ്ധമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു പരാഗ്വെ പ്രസിഡന്റുമായി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലയിലെ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് പരാഗ്വെയെന്ന് ശ്രീ

പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പരാഗെ നേതൃത്വം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു

വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ധ്രാരണാപത്രങ്ങളും ഉപരാഷ്ട്രപതിയുടെ സാന്നിദ്ധ്യത്തിൽ ഒപ്പൂ്പൂച്ചു കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെട്ടിയുള്ള ഉന്നതതല സംഘം ഉപരാഷ്ട്രപതിയെ അനുഗമിക്കുന്നുണ്ട്

ലോക്പാലിലെ അദ്ധ്യക്ഷൻ മറ്റ് അംഗങ്ങൾ എന്നീ സ്ഥാനങ്ങളിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടവരുടെ പേരുകൾ പരസ്യപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി ലോക്പാൽ അംഗങ്ങളെ കണ്ടെത്താനുള്ള സമിതി നടപടികൾ പൂർത്തിയാക്കിയതായും തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുന്നിലാണെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു

ഏറ്റുമുട്ടലിന് ശേഷം കാട്ടിലേക്ക് രക്ഷപ്പെട്ട മറ്റ് മാവോയിസ്റ്റുകളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജ്ജിതമായി തുടരുകയാണ് അതിനിടെ സി

ആയുധ ധാരികളായ നാല് മാവോയിസ്റ്റുകളാണ് ഇന്നലെ രാത്രി ദേശീയ പാതയോട് ചേർന്ന സ്വകാര്യ റിസോർട്ടിനു സമീപം പോലീസിനുനേരെ ആക്രമണം നടത്തിയത് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്

ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെട്ടുത്തു